ജെ

പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ പ്രചാരണരംഗത്ത് സജീവമായി കഴിഞ്ഞു

വരുംദിവസങ്ങളിൽ പ്രചാരണം കൊഴുക്കും പത്രികാ സമർപ്പണത്തിന് അഞ്ച് ദിവസം മാത്രം ബാക്കിനിൽക്കെ പ്രമുഖ സ്ഥാനാർത്ഥികളാരും ഇതുവരെ പത്രിക നൽകിയിട്ടില്ല

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ പത്രിക നൽകും മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എത്തുന്നതോടെ ഇന്നുമുതൽ പത്രികാ സമർപ്പണം ഊർജ്ജിതമാകും വെള്ളിയാഴ്ചയാണ് പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം കോൺഗ്രസ് ആറും ബി

പി മൂന്നും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് ദേദ ആറ് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് വൈകീട്ട് പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു കൽപ്പറ്റ നിലമ്പൂർ തവനൂർ പട്ടാമ്പി കുണ്ടറ വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുള്ളത് ദേദ കഴക്കൂട്ടം ഉൾപ്പടെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർഥികളെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് ബി

നേമത്ത് കോൺഗ്രസിന് ഒരു പ്രസക്തിയും ഇല്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ദേദ കേരളത്തിന് നഷ്ടപ്പെട്ട യശസ്സ് അഞ്ച് വർഷത്തെ ഭരണം കൊണ്ട് വീണ്ടെടുക്കാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭരണ മികവ് ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിയുണ്ടായെന്നും വിദ്യാഭ്യാസം ആരോഗ്യം ക്രമസമാധാനം എന്നിവയിലെല്ലാം സംസ്ഥാനത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനായെന്നും പിണറായി പറഞ്ഞു കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേദ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒരേ തൂവൽപക്ഷികളെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി

മോദി ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പ് വരുത്താനാണ് സംസ്ഥാനത്ത് ബി

വികസന കാര്യത്തിൽ നാഴികക്കല്ലാകുന്ന കാര്യങ്ങൾ നടപ്പാക്കികൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു പാറശ്ശാല മണ്ഡലം എൻ

എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വെള്ളറടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേദ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർഥി പട്ടികയിൽ പുതു തലമുറയ്ക്ക് വൻ അംഗീകാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ എല്ലാ പാർട്ടികളിലും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ടു ദിവസത്തിനകം അതെല്ലാം അവസാനിക്കുമെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത് ഗുണകരമല്ലെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു

കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണിക്കു വേണ്ടി ജോസഫ് മാർട്ടിൻ അഗസ്റ്റിൻ

പരമാവധി വോട്ടർമാരെ തങ്ങളിലേക്ക് ആകർഷിക്കുക ഇവ വോട്ടാക്കി മാറ്റുക ഇതിനായി കഠിന പ്രായക്നത്തിലാണ് സ്ഥാനാർഥികൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കപെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലാ ഭരണകൂടം ജാഗ്രത പുലർത്തുന്നുണ്ട് ക്രമസമാധാന പാലനത്തിനായി പോലീസും മറ്റ് സംവിധാനങ്ങളും സുസജ്ജം

ഡി സതീശൻ തൃപ്പൂണിത്തുറ കെ ബാബു കൊച്ചി ടോണി ചമ്മണി എറണാകുളം ടി ജെ വിനോദ് തൃക്കാക്കര പി ടി തോമസ് കുന്നത്ത്നാട് വി പി സജീന്ദ്രൻ പിറവം അനൂപ് ജേക്കബ്

എഫ് സ്ഥാനാർത്ഥികളും അവരുടെ മണ്ഡലങ്ങളും കൊച്ചി കെ ജെ മാക്സി അങ്കമാലി ജോസ് തെറ്റയിൽ എറണാകുളം ഷാജി ജോർജ് തൃപ്പൂണിത്തറ എം സ്വരാജ് കളമശ്ശേരി പി രാജീവ് എന്നിവരാണ്

എ സ്ഥാനാർഥികളും അവരുടെ മണ്ഡലങ്ങളും കൊച്ചി സി

എസ് ഷൈജു ആലുവ എം എൻ ഗോപി എന്നിവരാണ്

പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയ പരാതികളിൽ തുടർ നടപടി സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു

പരീക്ഷയ്ക്കായി തയാറെടുക്കുന്ന ധീരരായ പോരാളികൾക്ക് സമ്മർദ്ദ രഹിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പെ ചർച്ച വലിയ പങ്കുവഹിക്കും ചർച്ചയുടെ നാലാം പതിപ്പാണിത് ദേദ നാൽ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തും ദ്ദേ സംസ്ഥാനത്ത് മെമു സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കും കൊല്ലം ആലപ്പുഴ ആലപ്പുഴ എറണാകുളം എറണാകുളം ഷൊർണ്ണൂർ മെമു സർവീസുകളാണ് ഇന്ന് പുനരാരംഭിക്കുന്നത് മലബാറിലേക്ക് ആദ്യ മെമു സർവീസിന് നാളെ തുടക്കമാകും

മെമു സർവീസ് കടന്നുപോകുന്ന സ്റ്റേഷനുകളിൽ നിന്ന് ജനറൽ ടിക്കറ്റും സീസൺ ടിക്കറ്റും ലഭിക്കുമെന്ന് റെയിൽവെ അറിയിച്ചു ഇതിനായി ഇന്നുമുതൽ സ്റ്റേഷനുകളിൽ കൌണ്ടറുകൾ തുറന്ന് പ്രവർത്തിക്കും നിലവിൽ സർവീസ് നടത്തുന്ന മറ്റെല്ലാ ട്രെയിനുകളിലും യാത്ര ചെയ്യാൻ മുൻകൂട്ടി റിസർവ് ചെയ്യണമെന്ന നിബന്ധന തുടരും ദേദ ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അവ ന്യായമായ വിലയിലും ഗുണമേന്മയിലും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ബോധവത്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനം ആചരിക്കുന്നത്

വിജയത്തോടെ അഞ്ച് മത്സര പരമ്പരയിൽ ഇരുടീമുകളും ഓരോ മത്സരം ജയിച്ച് സമനിലയിലാണ്

ദേദ ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി നിർണായക മത്സരത്തിൽ ഇന്ന് റിയൽ കശ്മീരിനെ നേരിടും കൊൽക്കത്തയിൽ ഉച്ചയ്ക്ക് രണ്ടിനാണ് മത്സരം ദ്ദേ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കരുത്തുറ്റ ജനാധിപത്യത്തിന് വിപുലമായ ജനപങ്കാളിത്തം എന്ന മുദ്രാവാക്യം ഉയർത്തി സ്വീപിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കിയിൽ നടത്തിയ സൌഹൃദ ക്രിക്കറ്റ് മത്സരത്തിൽ പ്രസ് ക്ലബ്ബ് ടീം വിജയിച്ചു പരമാവധി സമ്മതിദായകരെക്കൊണ്ട് വോട്ട് ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്

ദേദ പൊതുജനാരോഗ്യത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തിയേറുന്നതിനാൽ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കൂടുതൽ ഗവൺമെന്റ് പദ്ധതികൾ അനിവാര്യമാണെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു കോവിഡ് മുതലായ പകർച്ചവ്യാധികളുടെ പ്രതിരോധം ചികിത്സ രോഗാനന്തര പരിചരണം എന്നിവയിൽ ആയുർവേദം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതായി സമ്മേളനം വിലയിരുത്തി

പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാൻ നടത്തുന്ന നീക്കം കേന്ദ്ര ഗവൺമെന്റ് ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാ പണിമുടക്ക് ദേദ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ശാഖകൾ ഇന്നും നാളെയും സാധാരണ പോലെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് കോഴിക്കോട് റീജ്യണൽ ജനറൽ മാനേജർ അറിയിച്ചു ദര മദ്യപാനാസക്തിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാൻ ബോധവൽക്കരണം ശക്തമാക്കുകയും നിയമങ്ങൾ കർശനമാക്കുകയും ചെയ്യണമെന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ